സംസ്ഥാനത്ത് പ്രചാരണം അവസാന ലാപ്പിൽ നാടിളക്കി ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിൽ

ഇരട്ട വോട്ട് തടയാൻ നടപടിക്ളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ

ഇരട്ട വോട്ടിന്റെ പിന്നിൽ ഉദ്യോഗസ്ഥ ലോബിയെന്ന് പ്രതിപ്പ്ക്ഷ നേതാവ് ജനവിധി വികസ്ത് വിരോധികൾക്കുള്ള മറുപടിയാകുമെന്ന് മുഖ്യമന്ത്രി

രാജൃത്ത് മൂന്നാം ഘട്ട കോവിഡ് വാക്സിനേഷന് തുടക്കമായി

അന്ത്യ അത്താഴ സ്മരണയിൽ പെസഹാ ആചരിച്ച് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ

ചലച്ചിത്ര രംഗത്തെ പരമോന്നത അംഗീകാരമായ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്ക്കാരം രജനീകാന്തിന് ഇലക്ഷൻ സംസ്ഥാനത്ത് നിയമസഭാ പ്രചാരണം അവസാന ലാപ്പിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നാടിളക്കിയുള്ള പ്രചാരണവുമായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത് തമ്പടിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നാളെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും പൊതുപരിപാടിയിൽ പങ്കെടുക്കും കേന്ദ്രമന്ത്രി അമിത് ഷായും നാളെയെത്തും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പ്രചാരണത്തിനെത്തും രണ്ടാം ഘട്ടമായി പ്രിയങ്കാഗാന്ധി തിരുവനന്തപുരം നേമത്തും കഴക്കൂട്ടത്തും പ്രചാരണം നടത്തും എൽ ഡി എഫിനായി സീതാറാം പ്ലെയ്ച്ചൂരി പ്രകാശ് കാരാട്ട് ബൃന്ദാ കാരാട്ട് സുഭാഷിണി അലി തുടങ്ങിയവർ പ്രചാരണം നടത്തുന്നു

നദ്ദ അൽപ്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും

പി നദ്ദ ഇന്ന് ഉച്ചയ്ക്കുശേഷം പത്തനംതിട്ടയിൽ ബിജെപിയുടെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും ആറന്മുളയിൽ തെക്കേമല മുതൽ കോഴഞ്ചേരി ടൌൺ വരെ റോഡ് ഷോയിൽ പങ്കെടുക്കും

പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഹരിപ്പാട് പറഞ്ഞു

എസ് സി നിയമനങ്ങളെല്ലാം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു

രാഹുൽ ഗാന്ധിയും പ്രിയ്ക്ക് ഗാന്ധിയും കേരളത്തിൽ എത്തി വികസനത്തെകുറിച്ച് തെറ്റിദ്ധാരണകൾ പരത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം ചെയ്യുന്ന സമയത്ത് വീടുകളിലെത്തി പരിശോധിച്ച് വോട്ടർപട്ടികയിൽ പേരുള്ള സ്ഥലത്തില്ലാത്തവർ സ്ഥലം മാറിയപ്പോയവർ മരിച്ചവർ തുടങ്ങിയവരെ ബി

കള്ളവോട്ടും ഇരട്ട വോട്ടും തടയാൻ പോളിങ് സ്റ്റേഷൻ തിരിച്ച് ഇവരുടെ പട്ടിക പ്രിസൈഡിങ് ഓഫീസർമാർക്ക് കൈമാറും

സംസ്ഥാനത്ത് നാല് ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു

ഇരട്ട വോട്ടിന് പിന്നിൽ ഉദ്യോഗസ്ഥ ലോബിയെന്നും സർക്കാരിനെതിരായ ജനവികാരത്തെ വ്യാജ വോട്ടുകളുടെ മറവിൽ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ശ്രീ

വികസനത്തിൽ ബഹുകാതം കേരളം മുന്നോട്ടു പോയെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബോഫോഴ്സ് മുതൽ ടു ജി വരെ അഴിമതി നടത്തിയവരാണ് കേരളത്തിൽ വന്ന് അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നത് ഈ ജനവിധി വികസന വിരോധികൾക്കുള്ള കൃത്യമായ മറുപടി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

പ്രളയം നിയന്ത്രിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഡാമുകളിൽ ഉണ്ടായിട്ടും അതു പാലിച്ചില്ലെന്നാണ് റിപ്പോർട്ടിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു

തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞ്ങളുടെ പ്രതിനിധി പി ജഗന്നിവാസൻ

അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു

ഓൺലൈൻ മുഖേനയും ആശുപത്രിയിൽ നേരിട്ടെത്തിയും രജിസ്റ്റർ തിരക്ക് ഒഴിവാക്കാൻ ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് വാക് സിനെടുക്കാൻ എത്തുന്നതാണ് അഭികാമ്യം

ബി ഐയ്ക്ക് വിട്ട് സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്

സംഭവത്തിൽ ഒരാളെ നടക്കാവ് പോലീസ് പിടികൂടി

ഇന്ത്യൻ ചലച്ചിത്രലോകത്തിന് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്രരംഗത്തിന്റെ പിതാവായ ദാദാസാഹിബ് ഫാൽകെയുടെ സ്മരണാർത്ഥമാണ് പുരസ്കാരം നൽകുന്നത്

രജനീകാന്തിന് ട്വിറ്ററിലൂടെ ആശ്രിസക്ളറിയിച്ചു

യേശു ക്രൂശിതനായ ദിനത്തെ അനുസ്മരിക്കുന്ന ദുഃഖവെള്ളി ദിനാചരണം നാളെയാണ് പെസഹായോട് അനുബന്ധിച്ച് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാലുകഴുകൽ ശുശ്രൂഷയും നടന്നു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് സിറോ മലബാർ സഭാ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ്ജ് ആലഞ്ചേരി മുഖ്യ കാർമികത്വം വാഹിച്ചു അദ്ദേഹം വിശ്വാസികളുടെ കാൽകഴുകൽ ശുശ്രൂഷയും നടത്തി സെന്റ് ഫ്രാൻസിസ് കത്തീഡ്രലിൽ നടന്ന പെസഹാ ചടങ്ങുകൾക്ക് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപറമ്പിൽ നേതൃത്വം നൽകി

പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലെ ശുശ്രൂഷകൾ കർദ്ദിനാൾ മാർ ബസേലിയോസ് ക്ലീമ്മീസ് കാതോലിക്കാബാവയുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്

പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിൽ പലിശനിരക്ക് കുറച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഉത്തരവ് പിൻവലിച്ചു

നിലയത്തിൽ അവശേഷിക്കുന്ന നാഫ്ത ഉപയോഗിച്ച് തീർക്കുന്നതിനുള്ള വൈദ്യുതി ഉൽപാദനം ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി